ദുരിതാ ശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞവർക്ക് പതിനായിരം രൂപ ഉടൻ നൽകണമെന്നും മുഖ്യമന്ത്രി ജില്ലാ കലക്ടർമാരുമായി നടത്തിയ വീഡിയോ കോൺഫ റൻസിൽ നിർദ്ദേശം നൽകി തുടർച്ചയായ ബാങ്ക് അവധി കാരണം തുക നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും അടുത്ത പ്രവൃത്തി ദിവസം തന്നെ തുക ലഭ്യ മാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു വീടുകളിലേക്ക് തിരിച്ചുപോകാൻ സാഹചരൃമുള്ള എല്ലാവരും രണ്ടുദിവസം കൊണ്ട് തിരിച്ചുപോകുമെന്ന് ഉറ പ്പാക്കണം തിരിച്ചുപോകാൻ കഴിയാത്തവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

തിരുവ നന്തപുരത്തെ പൊലീസ് ആസ്ഥാനത്ത് ജില്ലാ പൊലീസ് മേധാവി മുതൽ ഉന്നത ഉദ്യോഗസ്ഥർവരെയുള്ളവരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ആളുകൾ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്നു ണ്ടെങ്കിലും കുറച്ചുദിവസംകൂടി ക്യാമ്പുകൾ തുടരേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ദുരിതാശ്ചാസവും പുനരധിവാസവും സ്ംബന്ധിച്ച് നട ത്തിയ അവലോകന യോഗത്തിൽ അറിയിച്ചു

രദ്ദമ്പ്പെട്ടറ സംസ്ഥാനത്തെ പ്രളയബാധിത പ്രദ്ദേശങ്ങളിൽ രണ്ടുദിവസത്തെ സന്ദർശനത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തും തുടർന്ന് ്ഹെലികോപ്ടറിൽ അദ്ദേഹം ചെങ്ങ ന്നൂരിലേക്ക് പോകും ഒരു മണിക്കൂറോളം ദുരിതബാധിതരോടൊപ്പം ചെല വഴിച്ച ശേഷം ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കും പ്രളയ ത്തിലകപ്പെട്ടവരെ രക്ഷിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന സ്വീകരണ ച്ചടങ്ങിലും രാഹുൽ പങ്കെടുക്കും മഴക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കെ

നാളെ രാവിലെ ഒൻപതിന് ദുരി താശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യാൻ എറണാകുളം ഡി സി സി സംഭ രിച്ച ഭക്ഷ്യവസ്തുക്കളും മറ്റും നിറച്ച ലോറികൾ മറൈൻ ഡ്രൈവിൽ രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട്ട് എത്തി യശേഷം ഹെലികോപ്ടറിൽ വയനാട്ടിലേക്ക് പോകും

ഉച്ച കഴിഞ്ഞ് കരിപ്പൂരിൽ നിന്ന് ഡൽഹിക്ക് മടങ്ങും രദ്ദമ്പ്പെട്ടറ പ്രളയക്കെടുതിക്ക് ഇരയായവർക്ക് നഷ്ടപരിഹാര വിതരണത്തിന് പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യു

എഫ് നേതൃയോഗം ആവശ്യപ്പെട്ടു

ഇതടക്കം നിർദ്ദേ ശങ്ങളടങ്ങിയ കേരള വെള്ളപ്പൊക്ക നഷ്ടപരിഹാര തീർപ്പു കൽപ്പിക്കൽ ട്രിബ്യൂണൽ പദ്ധതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതായി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയി ച്ചു മുന്നറിയിപ്പിലാതെ ഡാമുകൾ തുറന്നുവിട്ടതാണ് മഹാപ്രളയത്തിന് കാര ണമായതെന്നും ഇതേപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും യോഗം ആവശൃപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു നിയമസഭയിലും ഇതുന്നയിക്കും ദുരി താശ്വാസ ക്യാമ്പുകളെ കൈപ്പിടിയിലൊതുക്കാൻ സി

കേരളത്തിന് പ്രത്യേക പാക്കേജ് കേന്ദ്രം അനുവദിക്കണമെന്നും വിദേശസഹായം പൂർണ്ണമായി ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗവൺമെന്റിന്റെ പുനരധിവാസ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യു

എഫ് പൂർണ്ണമായി സഹകരിക്കുമെന്നും ചെന്നി ത്തല പറഞ്ഞു

വൈകീട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാ ടനം ചെയ്യും പ്രശസ്തിപത്രവും മുഖ്യമന്ത്രി സമ്മാനിക്കും

രദേഷ്ടെടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് ഒരുമാസത്തെ ശമ്പളം നൽകും

പിമാരുടെ വിക സന നിധിയിൽ നിന്ന് അദ്ദേഹം ഒരുകോടി രൂപയും നൽകും

സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു ഇപ്പോഴത്തെ ചട്ടങ്ങൾക്ക് പുറകെ പോ യാൽ വേഗത്തിൽ പുനർനിർമ്മാണം സാധിക്കില്ലെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു

മൂന്നുദിവസം കൊണ്ട് വീടുകളും പരിസര ങ്ങളും വൃത്തിയാക്കുന്ന മഹാ ശുചീകരണ യജ്ഞമാണ് ഇന്ന് തുടങ്ങുന്ന ത് ജില്ലയ്ക്കകത്തും പുറത്തും നിന്ന് ഒരുലക്ഷത്തോളം സന്നദ്ധ പ്രവർത്ത കർ പങ്കാളികളാകും

കൈനകരി മുട്ടാർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലൊഴികെ എല്ലായിടത്തും വെള്ളം താഴ്ന്നിട്ടുണ്ട് രുട്ടിട്ട്ട്ട്ട്ട്ട്ട കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകൾ നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടിന് ആരംഭിക്കുമെന്ന് സിയാൽ അറിയിച്ചു ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്

ഇതേതുടർന്ന് നാവിക വിമാനത്താവളത്തിലേക്ക് മാറ്റിയ സർവീസുകൾ നാളെ അവസാനിപ്പിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട പ്രളയക്കെടുതിയെ തുടർന്ന് മെഡിക്കൽ പ്രവേശന കൌൺസിലിന്റെ അവസാന തിയ്യതി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു

കൌൺസിലിന്റെ വിശദ വിജ്ഞാപനം പിന്നീട് പ്രസിദ്ധീകരിക്കും രദ്ദേഷ്ടങ ആധാർ നമ്പർ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഒരാളുടെ പേര് ഒന്ന ലധികം തവണ വോട്ടർ പട്ടികയിൽ വരുന്നത് തടയാൻ ഇത് സഹായകമാ കുമെന്ന് തെരഞ്ഞെടുപ്പ് പരിഷ്കാരം ചർച്ച ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ന്യൂഡൽഹിയിൽ വിളിച്ചുചേർത്ത അംഗീകൃത രാഷ്ട്രീയ പാർട്ടി കളുടെ യോഗത്തിൽ അവർ അഭിപ്രായപ്പെട്ടു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആറ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് നിശ്ചിത ശതമാനം വി

പാറ്റുകളിലെ വോട്ടുകൾ എണ്ണമെന്ന ആവശ്യം പരിശോധിക്കാമെന്ന് കമ്മീഷൻ ഉറപ്പ് നൽകി

സംസ്ഥാനത്ത് അയ്യങ്കാളിയുടെ സ്മരണക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ദൃഭ ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം

സ്വന്തം പേരിലെ റെക്കോർഡാണ് നീരജ് തകർത്തത് ഗെയിംസിന്റെ ഒമ്പതാം ദിവസമായ ഇന്നലെ നീരജിന്റെ സ്വർണത്തിന് പുറമെ അത്ല റ്റിക്സിൽ മൂന്ന് വെള്ളിയും ബാഡ്മിന്റണിൽ വെങ്കലവുമാണ് ഇന്ത്യ നേടി യത്

വനിതാ ബാഡ്മിന്റൺ സെമിയിൽ തോറ്റ സൈന നെഹ്വാളിന് വെങ്കലം ലഭിച്ചു

ദർവ്വട്ടങ ആറന്മുള ഉതൃട്ടാതി ജലമേളയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ നാളെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രഖ്യാപിച്ചിരുന്ന അവധി റദ്ദാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു പ്രളയക്കെടുതി കാരണം അറന്മുള ജലോത്സവം ആചാരപ്രകാരം മാത്രമായിരിക്കുമെന്നും മത്സര വള്ളംകളി ഒഴിവാക്കിയതായും ആറന്മുള പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ പറഞ്ഞു

മലപ്പുറം വയനാട് കോഴി ക്കോട് അതിർത്തി പ്രദേശങ്ങളിലെ വനമേഖലയോട് ചേർന്ന് ഗ്രാമങ്ങളിലാണ് ഇവർ എത്തിയത് കോടഞ്ചേരി പൊലീസ് സ്റ്റേഷൻ പരിധിയിലെ കൂരാട്ട്പാ റയിലാണ് തിരുവോണ നാളിൽ ഒരു സ്ത്രീയും നാല് പുരുഷന്മാരും അട ങ്ങിയ സംഘം എത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അഭിട്ട്ട്ടിട്ടുള് കോഴിക്കോട് നഗരഹൃദയത്തിലൂടെ കടന്നുപോകുന്ന കനോലി കനാ ലിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ ശുചീകരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം കുറിക്കും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും വേങ്ങേരി നിറവിന്റെ സഹ കരണത്തോടെ നടപ്പാക്കുന്ന ഓപ്പറേഷ്ടൻ കനോലി കനാൽ മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രനും കലക്ടർ യു വി ജോസും അറിയിച്ചു

രുട്ടിട്ടുള പിതൃസഹോദരൻ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒമ്പതുവയസ്സു കാരൻ മുഹമ്മദ് ഷഹീനുവേണ്ടി തെരച്ചിൽ കടലുണ്ടി പുഴയിൽ തുടരുക യാണ് കഴിഞ്ഞ നാലുദിവസമായി നടത്തിയ തെരച്ചിലിലും കുട്ടിയെ കണ്ടെ ത്താനായില്ല കടലോര ജാഗ്രതാ സമിതിയുടെയും മത്സ്യതൊഴിലാളികളു ടെയും സഹായം പൊലീസ് തേടിയിട്ടുണ്ട് രദേഷ്ടങ കണ്ണൂർ ഇരിട്ടിക്കടുത്ത് പയഞ്ചേരിയിൽ പുഴയിൽ വീണ് കാണാതായാ ളുടെ മൃതദേഹം കണ്ടെത്തി പയഞ്ചേരിമുക്കിലെ റോയൽ എഞ്ചിനീയറിംഗ് ഉടമ കല്ലടയിൽ ഡൊമനിക്കാണ് മരിച്ചത് രദേഷ്ടങ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് യൂണിയൻ മുൻ സംസ്ഥാന ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ കണ്ണൂർ മാലൂരിലെ എ

സംസ്കാരം ഉച്ചയ്ക്ക് ഒരു മണിയ്ക്ക് ചാവശേരി പൊതുശ്മശാനത്തിൽ നടക്കും

സി സർവീസുകൾ പലതും റദ്ദാ ക്കി

രദേഷ്ടെടു കാസർകോട് തൃക്കരിപ്പൂരിൽ മത്സ്യബന്ധനത്തിനിടെ പുറംകടലിൽ കുടു ങ്ങിയ മത്സ്യതൊഴിലാളികളെ രക്ഷപ്പെടുത്തി നീല്ലേശ്വരം അഴീത്തല അഴി മുഖത്ത് നിന്ന് ഇന്നലെ രാവിലെ നാൽപ്പത് മത്സൃതൊഴിലാളികളുമായി പോയ വള്ളമാണ് യന്ത്രത്തകരാർ നിമിത്തം കടലിൽ കുടുങ്ങിയത്